കോവിഡ് ബാധിച്ച് ്യു ്കെയിലും ദുബായിലുമായി രണ്ട് മലയാളികൾ ്മരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

കണ്ണൂർ ജില്ലയിലുള്ളയാൾ ദുബായിൽ നിന്നും പത്തനംതിട്ടയിലുള്ളയാൾ ഷാർജയിൽ നിന്നും വന്നതാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡൽഹി തമിഴ്നാട് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ഇതിനെപ്പറ്റി നാളെ ചേരുന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു

വളം കീടനാശിനികൾ എന്നിവയ്ക്ക് പുറമേ കൃഷിയന്ത്രങ്ങളും കർഷകർക്ക് ലഭ്യമാക്കാൻ സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം വൃക്തമാക്കി എ പി എം സി നിയമത്തിലെ വൃവസ്ഥകളിൽ ഇളവ് വരുത്തി കർഷകർക്ക് കൂടുതൽ വിപണന സാഹചര്യങ്ങൾ ലഭ്യമാക്കാൻ സംസ്ഥാനങ്ങൾ ശ്രമിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു

ആദ്യം പിടിച്ചെടുത്ത വാഹനങ്ങൾ ആദ്യം എന്ന ക്രമത്തിലായിരിക്കും വാഹനങ്ങൾ മടക്കി നൽകുന്നത് വാഹന ഉടമകളിൽ നിന്ന് പിഴ ഇൌടാക്കുന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം ലഭിച്ചശേഷം തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചായി രിക്കും വാഹനങ്ങൾ വിട്ടുനൽകുക

ഉയർന്ന താപനിലയിൽ രോഗം വരാതിരിക്കുമെന്ന പ്രചരണവും തെറ്റാണെന്ന് പി

ബി അറിയിച്ചു

പരിശോധനയിൽ പച്ചക്കറി പലചരക്ക് ചിക്കൻ എന്നിവയിന്മേൽ അമിത വില ഈടാക്കുന്നതായി കണ്ടെത്തി നിയമലംഘനങ്ങളിൽ അനന്തര നടപടി സ്വീകരിക്കുന്നതിനായി മാവേലിക്കര താലൂക്ക് സപ്സൈ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അറിയിച്ചു

ക്ടോവീഡ് പ്രതിരോധം ലക്ഷ്യമിട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലീനം നൽകിവരുന്നതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ അറിയിച്ചു

അതത് ദ്വീപിലെ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ അനുമതിയോടെ രോഗികൾക്കും സഹായികൾക്കും ഈ സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് ദ്വീപുകളെ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന യാത്ര ആരംഭിക്കുന്നതിനെപ്പറ്റി നാളെ ലക്ഷദ്വീപ് അഡ്മിസ്ട്രേറ്ററുടെ അധ്യക്ഷതിയിൽ ചേരുന്ന യോഗം ചർച്ച ഘയ്യും

ജില്ലയിൽ നിലവിൽ ഏഴ് പേരാണ് കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ തുടരുന്നത് ഇവരുടെയെല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്

ഇന്ന് പുതിയതായി ആരും നിരീക്ഷണത്തിൽ ഇല്ല

കുരിശുമരണം വരിച്ച യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇൌസ്റ്റർ ആഘോഷിക്കുന്നത് എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഇല്ലാതെയാണ് ഇത്തവണ്ണൂ വിശ്വാസികൾ ഈസ്റ്റർ ആചരിക്കുന്നത്

ഈസ്റ്റർ ആഘോഷിക്കൂന്ന് ക്രൈസ്തവർക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതിട്ട് എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ആശംസകൾ നേർന്നു കോവിഡ് വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ഭൂമിക്ക് രൂപം നല്കാൻ ഈ ഇൌസ്റ്റർ നമുക്ക് ശക്തി പകരട്ടെയെന്ന് പ്രധാനമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു

ലോകം കോവിഡിനെതിരെ പൊരുതുമ്പോൾ കോറോണ വൈറസ് പ്രതിരോധായുധമായ മാസ്കിന്റെ നിർമ്മാണത്തിലാണ് മലപ്പുറം സെന്റ്ജമ്മാസ് കോൺവെന്റിലെ സിസ്റ്റർമാർ

ഇന്ത്യാക്കാറ്ട്ത്ത് കാറന്റൈൻ ചെയ്യുന്നതിന് സാധൃത പരിശോധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

നാല് വൃക്തികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു

പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു

ലഡാക്കിലേക്ക് അവശൃ വസ്തുക്കൾ എത്തിക്കേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടായതിനാൽ ലഡാക്ക് ഡിവിഷണൽ കമ്മീഷണറുടെ നിർദ്ദേശ പ്രകാരമാണ് പാത തുറന്നത് കൃഷകൃഷക വേലിയേറ്റം നാളെ രാത്രി വരെ വേലിയേറ്റം മൂലം തീരത്തോട് ചേർന്നുള്ള കടൽ മേഖല പ്രക്ഷുബ്പമാകുവാനും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി പൊന്നാനി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം കയറാനുമുള്ള സാധൃതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന കേന്ദ്രം അറിയിച്ചു

കേരള തീരത്ത് മൽസ്യ ബന്ധനത്തിന് തടസ്സമില്ല

നാളെ വൈകിട്ട് മൂന്നു മണിമുതൽ നാലരവരെയാണ് ഫേസ്ബൂക്ക്ക് ലൈവ്